നിരവധി സഹകരണ കരാറുകളിൽ ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷം ഇരു രാജ്യങ്ങളും ഒപ്പു വയ്ക്കും സൌദി പ്രതിരോധ മന്ത്രിയും വൈസ് പ്രസിഡന്റുമായ മുഹമ്മദ് ബിൻ സാൽമാനോടൊപ്പം ഉന്നതതല പ്രതിനിധി സംഘവും ഉണ്ട് മന്ത്രിമാർ ഉയർന്ന ഉദ്യോഗസ്ഥർ വ്യാപാര പ്രതിനിധികൾ എന്നിവർ സംഘത്തിലുണ്ട് രണ്ടു ദിവസത്തെ സന്ദർശനാർത്ഥം ഇന്നലെയാണ് മുഹമ്മദ് ബിൻ സൽമാൻ ന്യൂഡൽഹിയിൽ എത്തിയത് വിമാനത്താവളത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൌദി കിരീടാവകാശിയെ സ്വീകരിച്ചു

ഇന്ത്യയും സൌദിഅറേബൃയും തമ്മിൽ ചരിത്രപരമായ ബന്ധമാണുള്ളത് വാണിജൃ രംഗത്തും സജീവ പങ്കാളികളാണ് ഇരുരാജ്യങ്ങളും

ന്യൂഡൽഹിയിൽ ഉൌർജ്ജ പരിസ്ഥിതി അന്താരാഷ്ട്ര സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം പാരിസ്ഥിക വിഷയങ്ങളിൽ ഉചിതമായ ആശയങ്ങൾ മുന്നോട്ട് വെയ്കാൻ നയം രൂപീകരിക്കുന്നവർ തയ്യാറാകണമെന്നും രാഷ്ട്രപതി പറഞ്ഞു എല്ലാ ജനങ്ങൾക്കും കുറഞ്ഞനിരക്കിൽ വൈദ്യുതി എത്തിക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ്

നിലവിലുള്ള വൃവസ്ഥകൾ രണ്ടാംഘട്ട പദ്ധതിക്കും തുടരുമെന്ന് കേന്ദ്രധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി മന്ത്രിസഭായോഗത്തിന് ശേഷം വാർത്താലേഖകരോട് പറഞ്ഞു

ഡൽഹി ഗാസിയാബാദ് മീററ്റ് റീജിയണൽ റാപ്പിഡ് ട്രാൻസിസ്റ്റ് സിസ്റ്റം നിർമിക്കുന്നതിനും മന്ത്രിസഭ അനുമതി നൽകി

സ്കൂൾ ്വീദ്യാർത്ഥികൾക്കുള്ള ഉച്ചഭക്ഷണ പദ്ധതിയുടെ വൃവസ്ഥകൾ പുനഃക്രമീകരീക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു

മുത്തലാഖ് ഉൾപ്പെടെ നാലു ഓർഡിന്റൻസുകൾ വീണ്ടും പുറപ്പെടുവിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചു ആഗോള മത്സരത്തിന് ഇലക്ട്രോണിക് വ്യവസായത്തെ സജ്ജമാക്കുക എന്ന ലക്ഷ്യത്തോടെ ദേശീയ ഇക്ട്രോണിക്സ് നയത്തിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി

ആർട്ട് ഓഫ് ലിവിംഗ് സംഘടിപ്പിച്ച ലഹരി മുക്ത ഇന്ത്യ പ്രചരണ പരിപാടിയുടെ ഭാഗമായി നൽകിയ വീഡിയോ സന്ദേശത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലഹരി കടത്തിലൂടെ ലഭിക്കുന്ന പണം രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനാണ് ഉപയോഗിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഇന്നലെ ഹിസാറിലെ ഗുരുജംബേശ്വർ സർവകലാശാലയിലാണ് പ്രധാനമന്ത്രിയുടെ വീഡിയോ സന്ദേശം പ്രദർശിപ്പിച്ചത്

രാജ്യരക്ഷാമന്ത്രി നിർമലാ സീതാരാമൻ യെലഹങ്കാ് വായുസേനാ താവളത്തിൽ എയർ ഷോ ഉദ്ഘാടനം ചെയ്തു വ്യോമയാന രംഗത്ത് പ്രതിരോധ നിർമാണ മേഖലയിൽ ഉൾപ്പെടെ ഗവൺമെന്റ് സൃഷ്ടിച്ച അനുകൂല സാഹചര്യം ഉപയോഗപ്പെടുത്തി വൻ നിക്ഷേപ സാധൃതകൾ പ്രയോജനപ്പെടുത്താൻ നിക്ഷേപകർ തയ്യാറാകണമെന്ന് ശ്രീമതി നിർമലാ സീതാരാമൻ പറഞ്ഞു കൂടുതൽ വിവരങ്ങളുമായി ലിൻസ

ഏഷ്യ എയ്റോ ഷോയുടെ അഞ്ച് ദിവസം നീളുന്ന പന്ത്രണ്ടാമത് പതിപ്പിനാണ് ഇന്ന് തുടക്കമായത് ഹിന്ദുസ്ഥാൻ ഏറോനോട്ടിക്സ് ലിമിറ്റഡ് തദ്ദേശീയമായി വികസിപ്പിച്ച എൽ സി

വ്യോമ പ്രകടനം ഇ്ൻഡ്യൻ വ്യോമസേനയുടെ ശക്തി വിളിച്ചോതുന്നതും നിരവധി വിമാന് കമ്പനികളുടെ പ്രദർശന വേദിയും കൂടിയാണ് രണ്ട് പർഷത്തിലൊരിക്കലാണ് ഇത് സംഘടിപ്പിക്കുന്നത്

ജർമ്മനി ഫ്രാൻസ് തുടങ്ങിയ് രാജ്യങ്ങളിലെ വിമാനങ്ങളും എയ്റോ ഷോയിൽ പങ്കെടുക്കുന്നുണ്ട്

ഇന്ത്യയുടെ വടക്ക് കിഴക്ക് പ്രദേശത്തന്റെ ആഭരണമാണ് അരുണാചൽപ്രദേശ് എന്ന് രാഷ്ട്രപതി ട്വിറ്ററിൽ കുറിച്ചു വികസന പാതയിലുള്ള മിസോറാമിന് ശ്രീ രാംനാഥ് കോവിന്ദ് എല്ലാ ആശംസകളും നേർന്നു

ദേവിയുടെ അനുഗ്രഹം തേടി നാടിന്റെ നാനാദിക്കിൽ നിന്നും ലക്ഷക്കണക്കിനും ഭക്തരാണ് തലസ്ഥാന നഗരിയിൽ എത്തിയത് ആധിിയും ്വ്യാധിയും സർവ്വവും ആറ്റുകാലമ്മയ്ക്ക് നൈവേദൃമായി അർപ്പിക്കാനുള്ള കാത്തിരിപ്പിലാണ് ഓരോ ഭക്തയും

വിഷ്ണു നമ്പൂതിരി ആറ്റുകാൽ ക്ഷേത്ര പരിസരത്തെ പണ്ടാര അടുപ്പിലേക്ക് തീ പകർന്നതോടെയാണ് പൊങ്കാല ചടങ്ങുകൾക്ക് തുടക്കമായത്

രാത്രി ഏഴിന് കുത്തിയോട്ട വ്രതക്കാർക്കുള്ള ചൂരൽകുത്ത് ആരംഭിക്കും

വ്രതം തുടർന്ന് വാദ്യമേളങ്ങളുടെയും താലപ്പൊലിയുടെയും കുത്തിയോട്ടക്കാരുടെയും അകമ്പടിയോടെ മണക്കാട് ശാസ്താക്ഷേത്രത്തിലേക്ക് ദേവിയെ എഴുന്നള്ളിക്കും

കേന്ദ്ര ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി വീഡിയോ കോൺഫറൻസിലൂടെ യോഗത്തെ അഭിസംബോധന ചെയ്യും

ഫ്രഞ്ച് പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേശകൻ ഫിലിപ്പി യെറ്റീനുമായി ദേശീയ സുരക്ഷ ഉപദേഷ്ടാവ് അജിത് ദോവൽ ഇന്നലെ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയതിന്റെ പിന്നാലെയാണ് ഫ്രാൻസിന്റെ നീക്കം